ത പ്രവാസികൾക്ക് സ്വന്തം കെട്ടിടം ക്വാറന്റൈൻ കേന്ദ്രമാക്കാമെന്ന ഉത്തരവ് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി ഇ പി ജയരാജൻ

വാർത്തകൾ വിശദമായി ആരാധനാലയങ്ങളും ഷോപ്പിംഗ് മാളുകളും റസ്റ്റോറന്റുകളും ഹോട്ടലുകളും തിങ്കളാഴ്ച മുതൽ തുറക്കുമ്പോൾ പാലിക്കേണ്ട മാർഗ്ഗരേഖ കേന്ദ്രം പുറത്തിറക്കി കോവിഡ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്കു മാത്രമായിരിക്കും കർശന വ്യവസ്ഥകളോടെ പ്രവേശനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു

ഷോപ്പിംഗ് മാളുകളിലെ സിനിമാ ഹാളുകളും ഗെയിമിങ്ങ് ആർക്കേഡുകളും കുട്ടികളുടെ കളിസ്ഥലവും തുറക്കാനനുവദിക്കില്ല ആരാധനാലയങ്ങളിൽ വിഗ്രഹത്തിലോ പരിശുദ്ധ ഗ്രന്ഥങ്ങളിലോ സ്പർശിക്കാൻ അനുവദിക്കില്ല ദർശനത്തിന് മാത്രം അനുമതി നൽകും വഴിപാട് നടത്താം എന്നാൽ പ്രസാദവും തീർത്ഥവും നൽകാൻ പാടില്ല പള്ളികളിൽ ഗായകസംഘം പാടില്ല സമൂഹ പ്രാർത്ഥനയ്ക്ക് സ്വന്തം പായ കൊണ്ടുവരണം പൊതുപായ അനുവദിക്കില്ല

ആരാധനാലയത്തിൽ പ്രവേശിക്കും മുമ്പ് കയ്യും കാലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം

വിളമ്പുന്നതിന് പകരം പാർസൽ പ്രോത്സാഹിപ്പിക്കണമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇവയൊന്നും തുറക്കരുതെന്നും അടിയന്തരാവശ്യവിഭാഗത്തിൽപ്പെടാത്ത ഓഫീസുകൾ പ്രവർത്തികരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ദേദ കേന്ദ്ര മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആരാധനാലയങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കൂടുതൽ പേർ ചികിത്സയിൽ കഴിയുന്നത് പാലക്കാട് ജില്ലയിലാണ്

ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ എട്ടുപേർക്ക് വീതവും പാലക്കാട് ഏഴുപേർക്കും കണ്ണൂരിൽ ആറുപേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം കോട്ടയം ജില്ലകളിൽ അഞ്ചുപേർക്ക് വീതവും തൃശൂരിൽ നാലും എറണാകുളം വയനാട് ജില്ലകളിൽ രണ്ടുപേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു

കോഴിക്കോട് മലപ്പുറം തൃശൂർ കാസർകോട് ജില്ലകളിലെ ഏഴുപേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്

കാസർകോടുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി പി ജഗന്നിവാസൻ നൽകുന്ന റിപ്പോർട്ട്

ദേദ കോഴിക്കോട് ജില്ലയിൽ വിദേശത്ത് നിന്ന് വന്ന നാലുപേർക്കും ചെന്നൈയിൽ നിന്നെത്തിയ മൂന്ന് പേർക്കും സമ്പർക്കത്തിലൂടെ മൂന്ന് പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ദേദ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അർബുദബാധിതയായി ചികിത്സയിലിരിക്കെ മരിച്ച യുവതിയുടെ ഭർത്താവ് ഭർതൃ സഹോദരി ദുബൈ കുവൈത്ത് ഖത്തർ മുംബൈ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ നാലുപേർ ഒരു എയർ ഇന്ത്യ ജീവനക്കാരൻ എന്നിവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ കലക്ടർ കെ

ദേഴ ആലപ്പുഴ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച എട്ടുപേരിൽ ആറുപേർ വിദേശത്തുനിന്നും രണ്ടുപേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്

ത്വശൂർ മെഡിക്കൽ കോളജിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയായ അഞ്ച് വയസ്സുള്ള കുട്ടിക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു ദേദ എറണാകുളം ജില്ലയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച രണ്ടുപേരും മഹാരാഷ്ട്ര സ്വദേശികളായ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥരാണ്

എടവക സ്വദേശി മാലദ്വീപിൽ നിന്നും തിരിച്ചെത്തിയതാണ് ദ്ദേ പ്രവാസികൾക്ക് സ്വന്തം കെട്ടിടം ക്വാറന്റൈൻ കേന്ദ്രമാക്കാമെന്ന ഉത്തരവ് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി ഇ പി ജയരാജൻ നിർദേശിച്ചു

ദേഴ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം കോവിഡ് രോഗവ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അട്ടപ്പാടിയെ സംരക്ഷിക്കാൻ സാധിച്ചതായി മന്ത്രി എ

ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് അതിർത്തികളിലും മറ്റും കുടുങ്ങിപ്പോയ അട്ടപ്പാടി സ്വദേശികൾക്ക് തിരിച്ചുവരാൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ എത്തുന്നവർ നിർബന്ധമായും വീടുകളിൽ നിരീക്ഷണത്തിൽ ഇരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ദരദ കോവിഡ് പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് മന്ത്രി ഡോ

ടി ജലീൽ സംസ്ഥാനത്തെ ആർട്സ് ആന്റ് സയൻസ് കോളജ് പ്രിൻസിപ്പൽമാരുമായി വീഡിയോ കോൺഫറൻസിൽ ചർച്ച നടത്തി

ദേഴ ഇന്ന് ലോക പരിസ്ഥിതിദിനം

ദർഭ ഈ വർഷം ഒരു കോടി ഒൻപതു ലക്ഷം വൃക്ഷത്തൈകൾ നട്ടാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഭൂമിക്ക് കുട ചൂടാൻ ഒരു കോടി മരങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മുഖ്യാതിഥിയാകും ദേദ കർഷകർക്ക് അധിക വരുമാന സ്രോതസ്സായി മിൽമ നടപ്പാക്കുന്ന ഫലവൃക്ഷം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ രാജ്ഭവനിൽ ഡോ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം മാവിൻ തൈ നട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവ്വഹിക്കും തൈകളുടെ വിതരണോദ്ഘാടനം വിയറ്റ്നാം ഏർളി സ്വാർഫ് പ്ലാവിൻ തൈ മന്ത്രി കെ രാജുവിന് നൽകി ഗവർണർ നിർവ്വഹിക്കും

ദേദ ഹരിതം സഹകരണം പദ്ധതിയിലൂടെ ഫലവ്യക്ഷത്തൈകളുടെ നട്ടുപരിപാലനത്തിന്റെ ഭാഗമായി ഇന്ന് ഒരു ലക്ഷം തെങ്ങിൻതൈകൾ നടും സുഭിക്ഷ കേരളം പദ്ധതിക്ക് പിന്തുണ നൽകി സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്ത് മാതൃക കൃഷിത്തോട്ടം നിർമ്മിക്കുന്ന പദ്ധതിക്കും ഇന്ന് സഹകരണവകുപ്പ് തുടക്കം കുറിക്കും ദേദ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നെയ്യാർഡാം കിക്മ ക്യാമ്പസിലെ ഒൻപത് ഏക്കറിൽ സംസ്ഥാന സഹകരണ യൂണിയൻ കൃഷിയിറക്കും ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പച്ചക്കറി നട്ട് പദ്ധതിയ്ക്ക് തുടക്കം കുറിക്കും